ജമ്മുകാശ്മീരിൽ നിയന്ത്രണ രേഖയിൽ പാക്കിസ്ഥാൻ അക്രമണം

ജെ

മാർക്കായി ്രഡിൽഹിയിൽ സംഘടിപ്പിച്ച ദ്വിദിന ശില്പശാലയുടെ സ്മാപ്ന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസ്ട്രുബോധന ചെയ്യും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

ശ്രീനഗറിൽ ഇന്നലെ രാത്രി പാകിസ്ഥാൻ സൈനികരും തീവ്രവാദികളും കൊല്ലപ്പെട്ടതായി പ്രതിരോധ വക്താവ് കേണൽ രാജേഷ് കാലിയ അറിയിച്ചു പാക് സേന തീവ്രവാദികൾ എന്നിവർ അടങ്ങിയതാണ് ബോർഡർ ആക്ഷൻ ടീം കൾമീർ താഴ് വരയിൽ സമാധാനം നഷ്ടപ്പെടുത്താനും അമർനാഥ് യാത്രയ്ക്കെതിരെയും പാകിസ്ഥാൻ രണ്ടു ദിവസമായി ആക്രമണങ്ങൾ നടത്തിവരുന്നതായും പ്രതിരോധ വക്താവ് അറിയിച്ചു

പ്രദേശത്ത് നിന്ന് തോക്കുകളും മൈനുകളും മറ്റ് ആയുധങ്ങളും പിടിച്ചെടുത്തു ഇതോടെ തീവ്രവാദ പ്രവർത്തനത്തിൽ പാകിസ്ഥാൻ പങ്ക് വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു നിയന്ത്രണ രേഖയ്ക്കും സമീപ പ്രദേശത്തും നടന്നുവരുന്ന എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ സേന ചെറുക്കുമെന്നും ശ്രീ

മോർട്ടർ ഷെല്ലുകളും ആയുധങ്ങളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്

ഇന്ത്യൻ സേന ശക്തമായി തിരിച്ചടിച്ചതായി പ്രതിരോധ വക്താവ് അറിയിച്ചു വെടിവെയ്പ്പിൽ ആളപായമുണ്ടായതായി റിപ്പോർട്ടില്ല

മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് ഇവിടങ്ങളിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കും ഈ സൌകര്യം ലഭ്യമായിരിക്കും സൂരക്ഷാ കാരണങ്ങൾ ഉന്നയിച്ച് ജമ്മുകശ്മീർ അധികൃതർ അമർനാഥ് തീർത്ഥാടകരോടും വിനോദസഞ്ചാരികളോടും മടങ്ങാൻ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് റെയിൽവേയുടെ ഈ നടപടി

ജെ

മാർക്കായി ന്യൂഏിൽപ്റിയിൽ സംഘടിപ്പിച്ച ദ്വിദിന പരി ശീലന പരിപാടി അഭ്യാസ് വർശ്ശയുട്ടെ സമ്മേളനത്തെ പ്രധാന മന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദ് അടിസംബോധന ചെയ്യും മന്ത്രിയോ നിയമസഭാംഗമോ ആയാലും അടിസ്ഥാന തലത്തിലെ പ്രവർത്തകരായിതന്നെ നീല്കൊള്ളണമെന്ന് ബി ജെ

മാരോട് ഉദ്ഘാടന വേളയിൽ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു

ജെ

മൌലികമായ അസ്തിത്വമാണെന്നും പലതരത്തിൽ എന്നത് കൂട്ടിച്ചേർക്കപ്പെട്ടതല്ലെന്നും ശ്രീമോദി പറഞ്ഞു കുടുംബ മാഹാത്മ്യമല്ല മറിച്ച് ബി ജെ പിയുടെ ആശയങ്ങളും ചിന്തകളുമാണ് ഈ നിലയിൽ വളരാൻ പാർട്ടിയെ സഹായിച്ചതെന്ന് ശ്രീ മോദിയെ ഉദ്ധരിച്ചു കൊണ്ട് പാർലമെന്ററികാര്യ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു പ്രായത്തിനുപരിയായി എക്കാലവും വിദ്യാർത്ഥികളായിരിക്കണമെന്നും പഠന രീതിതുടരണമെന്നും ശ്രീ

ജെ

പ്രസിഡന്റും ആഭ്യന്തരമന്ത്രിയുമായ അമിത് ഷാ പാർട്ടി വർക്കിംഗ് പ്രസിഡന്റ് ജെ

നദ്ദ എന്നിവരും ശില്പശാലയിൽ പങ്കെടുത്തു

പിമാർക്ക് പാർലമെന്ററി നടപടിക്രമങ്ങളിൽ പരിശീലനം നൽകുന്നതിനാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്

ഈ പ്രവർത്തകർ വീടുകൾ തോറും സന്ദർശിച്ച് ഗ്രാമങ്ങളിലും ചേരികളിലും ബോധവത്കരണം നടത്തണമെന്നും ഉപരാ ഷ്ട്രപതി നിർദ്ദേശിച്ചു

ഐ

കേന്ദ്ര ഫോറൻസിക് ലബോറട്ടിറിയിൽ നിന്നുള്ള പ്രത്യേക സംഘം അപകടം നടന്ന റായ്ബറേലിയിലെ സ്ഥല്ടത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു മറ്റൊരു സംഘം പെൺകുട്ടിയും അഭിഭാഷകനും ചികിത്സയിൽ കഴിയുന്ന ആശു പത്രിയിൽ സന്ദർശനം ഭൃട്ടത്തി കുറ്റാരോപിതനായ എം

ബി ഐ

പെൺകുട്ടിയുടെയും അഭിഭാഷകന്റെയും ആരോഗ്യ നില അപകടകരമായി തന്നെ തുടരുന്നതായി ആശുപത്രി അധികൃതർ വ്യക്തമാക്കി

നാല് വിക്കറ്റിനാണ് ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തിയത്

രണ്ടാം മത്സരത്തിനും ലോണ്ടർ ഹിൽ സ്റ്റേഡിയം തന്നെയാണ് വേദിയാകുന്നത്

ആരോഗ്യ സംരക്ഷണം എബോളയെ ചെറുക്കൽ കാർഷി കം ഗതാഗതം ഉൌർജ്ജ സംരക്ഷണം എന്നിവയിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ സഹകരണം ആവശ്യമാണെന്നും ശ്രീ കോവിന്ദ് വ്യക്തമാക്കി തന്റെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായിരുന്നതായും അദ്ദേഹം പറഞ്ഞു ആഫ്രിക്കൻ രാഷ്ട്രങ്ങളായ ബെനിൻ ഗാംബിയ ഗ്വിനിയ എന്നിവിടങ്ങളിലാണ് രാഷ്ട്രപതി സന്ദർശനം നടത്തിയത്

ഹൈദരാബാദിൽ ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് ഇക്കാര്യത്തിൽ പ്രധാന പങ്ക് വഹിക്കണമെന്നും കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു പ്രാദേശിക ആഗോളതലത്തിൽ സമാധാനവും സ്ഥിരതയും കൈവരിക്കാനാണ് ഇന്ത്യയുടെ പ്രതിരോധ നയം ലക്ഷ്യം വയ്ക്കുന്നത്

ന്യൂസ് ഡസ്ക് ആകാശവാണി

അമേരിക്ക മെക്സിക്കൻ അതിർത്തിയിൽ നിന്ന് ഏതാനും മൈലുകൾ അകലെ ഒരു വ്യാപാര സമുച്ചയത്തിനരികിലാണ് വെടിവയ്പ്പ് നടന്നത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ കസ്റ്റഡിയിലെടുത്തു

കർഷകർക്ക് മിനിമം വേതനവും ഉറപ്പാക്കിയിട്ടുണ്ട് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് ആകാശവാണിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീ

കർഷകർ കർഷക തൊഴിലാളികൾ സാധാരണതൊഴിലാളികൾ യുവാക്കൾ സ്ത്രീകൾ എന്നിവരെയെല്ലാം ഗവൺമെന്റ് പരിഗണിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയ്ക്കും ഊന്നൽ നൽകുന്നുണ്ട്

കിംവദന്തികളിൽ വിശ്വസിക്കരുതെന്നും അദ്ദേഹം മുഖ്യധാരാ രാഷ്ട്രീയ നേതാക്കളോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചു

ഡി പി അധ്യക്ഷ മെഹബൂബ മുഫ്തി ജമ്മുകശ്മീർ പീപ്പിൾസ് മൂവ്മെന്റ് അധ്യക്ഷൻ ഡോ ഷാ ഫൈസൽ പീപ്പിൾസ് കോൺഫറൻസ് അധ്യക്ഷൻ സജാദ് ലോൺ മറ്റൊരു നേതാവ് ഇമ്രാൻ റാസ അൻസാരി എന്നിവരുമായി കഴിഞ്ഞ രാത്രി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു

സ്വർണ പണയത്തിന്മേലുള്ള കാർഷിക വായ്പകൾ നിർത്തിവയ്ക്കാനോ പരിമിതപ്പെടുത്തുന്നതിനോ വേണ്ടിയുള്ള ഏതെങ്കിലും ഉത്തരവോ നിർദ്ദേശമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും സംസ്ഥാന ഗവൺമെന്റിന് ലഭിച്ചിട്ടില്ല

ഇത് സംബന്ധിച്ചുവ്യൂർത്ത്കൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പറഞ്ഞു